ശതാബ്ദിയാഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

നിർവ്യാപന കരാർ അഞ്ച് വർഷത്തേക്ക് നീട്ടി

എല്ലിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി

ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് വിദൂര ദൃശ്യ സംവാദ സംവിധാനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്യും ചൌരി ചൌര സംഭവത്തിന്റെ സ്മരണയ്ക്കായി തപാൽസ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചടങ്ങിൽ പങ്കെടുക്കും സംസ്ഥാന വ്യാപകമായ ആഘോഷങ്ങൾ ഇന്ന് ആരംഭിക്കും എല്ലാ ജില്ലകളിലും രക്തസാക്ഷികളുടെ സമാധിയിൽ പ്രത്യേക പരിപാടികളുണ്ടാവും സ്കൂൾ വിദ്യാർത്ഥികൾ എൻ എസ് എസ് എൻ സ്ട്രീസി കേഡറ്റുകൾ സ്കൌട്ടുകൾ ഗൈഡുകൾ എന്നിവ ജില്ലിക്കളില്ല പരേഡിൽ അണിനിരക്കും

ബംഗളുരുവിൽ നടക്കുന്ന എയ്റോ ഇന്തൃ വ്യോമാഭ്യാസ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച മടിക്കേരി സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ ജനറൽ തിമയ്യ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും

അന്നുതന്നെ അദ്ദേഹം ആന്ധ്രാപ്രദേശ് വഴി ഡൽഹിക്ക് മടങ്ങും

പെൻഷൻ പ്രക്രിയ മെച്ചപ്പെടുത്തി പെൻഷൻകാർക്ക് സൌകര്യമൊരുക്കുന്നതിനായി ക്ഷേമവകുപ്പ് ഭവിഷൃ എന്ന സോഫ്റ്റ് വെയർ വികസിപ്പിച്ചതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ലോക്സഭയ്ക്ക് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു

രാജ്യം പ്പുതീയു ഉയരങ്ങളിലേക്ക് പോകുന്നത് ആർക്കും തടയാനാവില്ല വ്യൂജിപ്രചരണങ്ങളല്ല പുരോഗതിയും വികസനവുമാണ് ഇന്ത്യയുട്ടിട്ട്ഗധേയം നിർണ്ണയിക്കുകയെന്നും ശ്രീ

വിദ്യാലയങ്ങളുടെ ശുചീകരണം ക്ലാസുകളുടെ ക്രമീകരണം സാമൂഹിക അകലം പാലിച്ച് വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ പാർപ്പിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കൈക്കൊണ്ടു കഴിഞ്ഞു സംസ്ഥാനങ്ങൾ അവിടത്തെ ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ കോവിഡ് സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ജില്ലാ ഭരണകൂടവുമായി കൂടിയാലോചിച്ച് പ്രവൃത്തി സംഘം രൂപീകരിക്കും

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

ഡി എഫും യു ഡി എഫും ഒരേ നാണയത്തിന്റെ ഇരുപ്പശ്ച്ങ്ങളാണെന്നും കേരള സർക്കാർ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ട് ദിവസത്തെ കേരള സന്ദർശത്തിനെത്തിയ ശ്രീ നദ്ദ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു ഇന്ന് തൃശൂരിൽ നടക്കുന്ന പൊതു സമ്മേളനത്തിൽ ശ്രീ നദ്ദ സംബന്ധിക്കും

വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മറ്റു ജില്ലകളും കേന്ദ്രസംഘം സന്ദർശിക്കും

ഇതോടെ സംസ്ഥാനത്ത് രണ്ടര ലക്ഷത്തിധികം ആരോഗ്യ പ്രവർത്തകരാണ് ഇതുവരെ വാക്സിൻ സ്വീകരിച്ചത്

ഇത് ലോകത്തെ സുരക്ഷിതമാക്കുമെന്ന് ഉടമ്പട്ടി പ്രഖ്യാപിച്ച അമേരിക്കൻ സെക്രട്ടറി ആന്റണി ബ്ലിൻകെൻ വ്യക്തമാക്കി

എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് അണ്വായുധ നിർവ്യാപന കരാർ ദീർഘിപ്പിക്കാൻ ധാരണയായത്

മുംബൈ സിറ്റി എഫ് സിയോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കേരളം തോറ്റത്

കൃാൻസറിനെതിരായ പോരാട്ടത്തിൽ ഓരോ വൃക്തിയും കൂടെയുണ്ട് കൂടെ പ്ല്യുവർത്തിക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ്ടു സ്ന്ദേശം